ദുരിതാശ്വാസ കൃാമ്പുകൾ സന്ദർശിച്ചു വൈകീട്ട് തിരു വനന്തപുരത്ത് അവലോകനയോഗം ചേരും കേരളത്തിന് വിദേശ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത പ്രളയ ദുരിതാശ്ചാസ സഹായം വാങ്ങാൻ അനുവദിക്കി ല്ലെങ്കിൽ തുല്ല്യമായ തുക കേന്ദ്രം നല്കണമെന്ന് കോടി യേരി ബാലകൃഷ്ണൻ അരുൺജെയ്റ്റ്ലി വീണ്ടും ധനമന്ത്രിയായി ചുമതലയേറ്റു മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും മുൻരാജ്യസഭാംഗവുമായ കുൽദീപ് നയ്യാർ അന്തരിച്ചു ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് ബാഡ് മിന്റണിൽ

രാവിലെ ഹെലി കോപ്കടറിൽ ചെങ്ങന്നൂരിലെത്തിയ അദ്ദേഹം ക്രിസ്ത്യൻ കോളേജിലെ ദുരിതാശ്ചാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരുമായി സംസാരിച്ചു തുടർന്ന് പത്ത നംതിട്ട കോഴഞ്ചേരി എം

എം ഓഡിറ്റോറിയത്തിലെ ക്യാമ്പിലും ആലപ്പുഴയിലെ പ്രളയബാധിത മേഖല യിലും അദ്ദേഹം സന്ദർശനം നടത്തി

ക്രേന്ദ്രത്തിൽ നിന്ന് പരമാവധി സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷക്കുന്നതെന്നും ഇതിനായി കേരളം ശ്രമിക്കുമെന്നും ജയരാജൻ അറിയി ച്ചു മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നതു മായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടി ക്കാഴ്ച നടത്തും രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട പട്ടാ ളക്കാർക്ക് വീരോചിതമായ യാത്രയയപ്പ് നല്കും മത്സ്യ ത്തൊഴിലാളികളെ ആദരിക്കും യുവാക്കളുടെ സേവന ങ്ങളെ ഗവൺമെന്റ് വിലമതിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യു ന്നതോടെ ഐ ടി അധിഷ്ഠിത വ്യവസായസ്ഥാപനങ്ങൾ തുടങ്ങാൻ കിൻഫ്രയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമ ന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് കണ്ണൂർ പ്രസ് ക്ലബ് സ്വരൂപിച്ച ഒരു ലക്ഷം രൂപയുടെ ചെക്ക് പ്രസി ഡണ്ട് എ കെ ഹാരിസ് മന്ത്രിക്ക് കൈമാറി

തുക വാങ്ങാൻ അനു വദിക്കില്ലെന്ന കേന്ദ്ര നയം സംസ്ഥാനത്തോട് പുലർത്തുന്ന വൈരാഗ്യനിലപാ ടിന്റെ തെളിവാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു വിദേശ സഹായം ലഭ്യമാക്കുന്നതിൽ ഇപ്പോഴത്തെ നിലപാടുകൾ തടസ്സമാണെങ്കിൽ അതിൽ മാറ്റം വരുത്തണമെന്നും കോടിയേരി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി കേന്ദ്രത്തോട് ഈ ആവശ്യം ഉന്നയിക്കണമെന്നും കോടിയേരി നിർദ്ദേശിച്ചു

വിദേശ മല യാളികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ രണ്ട് മാസം മുമ്പ് ലഭിച്ച ക്ഷണമാണ്

പ്രളയ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മടങ്ങാൻ ശ്രമിച്ചിരുന്നു വെന്നും എന്നാൽ ടിക്കറ്റ് കിട്ടാൻ രണ്ട് ദിവസം വൈകി യതായും മന്ത്രി പറഞ്ഞു താൻ എത്താത്തിനാൽ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങ ളിൽ വീഴ്ചയൊന്നും വന്നിട്ടില്ലെന്നും രാജു തിരുവനന്ത പുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

വൈദ്യുതി ഉത്പാ ദനം നോക്കിയല്ല അണക്കെട്ടുകളിലെ ജലനിരപ്പ് തീരുമാനിക്കേണ്ടതെന്നും അവർ പറഞ്ഞു കൊച്ചി ഏലൂരിൽ പ്രളയക്കെടുതി നേരിൽ കണ്ടശേഷം മാധ്യമ ങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ

കേന്ദ്രഗവൺമെന്റ് അനുവദിച്ചതിനേക്കാൾ കൂടുതലാണ് യു എ ഇ വാഗ്ദാനം ചെയ്ത സഹായ മെന്നും മേധാപട്കർ വിലയിരുത്തി

ദേവസ്ഥംബോർഡ് പമ്പാ തീരത്ത് ഇനി പുതിയ നിർമ്മാണങ്ങളൊന്നും നടത്തി ല്ലെന്ന് പ്രസിഡണ്ട് എ പത്മകുമാർ പത്തനംതിട്ടയിൽ പറഞ്ഞു

ഇവരെ തിരികെയെത്തിക്കാൻ ശ്രമം നടക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ്

പോത്തുണ്ടി സ്വദേശി ദിനേശിനെയാണ് രാവിലെ അറസ്റ്റ് ചെയ്തത്

ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ന്യൂഡൽഹിയിലെ സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ കുലപതികളിലൊ രാളാണ് കുൽദീപ് നയ്യാറുടെ മരണത്തോടെ ചരിത്ര ത്തിന്റെ ഭാഗ മാ കു ന്ന ത്

ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നതിന് ദിവസങ്ങൾക്കു മുമ്പ് അദ്ദേഹത്തെ കാണാനും ഗാന്ധിജി പങ്കെടുത്ത യോഗം റിപ്പോർട്ട് ചെയ്യാനും കുൽദീപ് നയ്യാർക്ക് കഴി ഞ്ഞു സ്റ്റേറ്റ്സമെൻ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്ര ങ്ങളുടെ പത്രാധിപരായി പ്രവർത്തിച്ചു

ഇന്ത്യാ പാക് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഇരുരാജ്യ ങ്ങളുടെയും സ്വാതന്ത്ര്യ ദിനങ്ങളിൽ അട്ടാരി വാഗ അതിർത്തിയിൽ മെഴുകുതിരി തെളിയിക്കാൻ അദ്ദേഹം നേതൃത്വം നല്കി

സംസ്കാരം അല്പസമയത്തിനകം ഡൽഹിയിലെ ലോധി ശ്മശാനത്തിൽ നടക്കും

അടിയന്തരാവസ്ഥയ്ക്കെതിരായ അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകൾ എക്കാലവും സ്മരിക്കപ്പെടു മെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

പിയൂഷ് ഗോയലാണ് ജയ്റ്റ്ലിയുടെ അഭാവത്തിൽ ധനമന്ത്രാലയത്തിന്റെ ചുമതല വഹി ച്ചിരുന്നത് ജക്കാർത്തയിൽ ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ സിംഗിൾസ് പോരാട്ടങ്ങൾ ഇന്ന് തുടങ്ങും

മെഡൽപട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ

ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ ഒഴിവാക്കിയതെന്ന് കെ എസ് ആർ ടി സി എം ഡി ടോമിൻ ജെ തച്ചങ്കരി ജീവനക്കാരെ അറിയിച്ചു

നോട്ടുനിരോധനവും ജി എസ് ടി യും മൂലം ചെറുകിട വൃവസായങ്ങൾ തകർന്നതടക്കം പ്രിണത ഫലമാണ് ആൾക്കൂട്ട കൊ ലപാതകങ്ങളിലേക്ക് നയിക്കുന്നത് വലിയ വിഭാഗം ആളുകളെ വികസന പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തു ന്നത് വിഘടനവാദ സംഘങ്ങളുടെ രൂപീകര്ത്തിലേക്ക് നയിക്ക പ്പെടാമെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മനിയിലെ ഹംബർഗിൽ ബുസേറിയസ് സമ്മർ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരി ക്കുകയായിരുന്നു രാഹുൽ

സൂര്യാസ്തമനത്തിനു മുമ്പ് മിനായിൽ നിന്ന് യാത്ര തിരിക്കാത്തവർ നാളെ നാലാം ദിവസം കല്ലേറുകർമ്മം കൂടി നടത്തിയായിരിക്കും മട ങ്ങുക